ലോക്സഭാ തെരഞ്ഞടുപ്പിന്റെ അവശേഷിക്കുന്ന രണ്ട് ഘട്ട പ്രചാരണങ്ങൾക്ക് ചൂടേറി

തയ്യാറാക്കുന്നതിനുള്ള അവസാന്റ് തീയതി നീട്ടി നൽകില്ലെന്ന് സുപ്രീംകോടതി

വിലക്ക് നീക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ച് ശ്രീലങ്ക

മുംബൈ ഇന്ത്യൻസിന് വിജയം

അണികൾക്ക് ആവേശം പകർന്ന് പ്രമുഖ നേതാക്കൾ ഇന്നലെ വിവിധ റാലികളിൽ പങ്കെടുത്തു

അധിക്ടാരത്തീലെത്തിയാൽ പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിക്കുമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗ്രീസ്ഡി ബി

അധ്യക്ഷ മായാവതി തുടങ്ങി പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് ആർ

പൌരത്വ രജിസ്റ്ററിൽ ബെഞ്ചാണ് ഉൾപ്പെട്ടതും അവഗണിക്കപ്പെട്ടതുമായ പൌരൻമാരുടെ എല്ലാ പരാതികളും കൈകാര്യം ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരം പൌരത്വ രജിസ്റ്ററിന്റെ കോർഡിനേറ്ററായ പ്രതീഖ് ഹജിലയ്ക്ക് നൽകുന്നതായും സുപ്രീംകോടതി അറിയിച്ചു രജിസ്റ്ററിൽ ചില പൌരൻമാരെ ഉൾപ്പെടുത്തിയത് എതിർത്ത വ്യക്തികൾ അത്തരം പരാതികൾ പരിഗണിക്കുന്ന പാനലിന് മുന്നിൽ ഹാജരാകുന്നില്ല എന്ന് ശ്രീ ഹജില സുപ്രീംകോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി വിനോദ് കുമാർ ചുഴലിക്കാറ്റ് കൂടുതൽ നാശം വിതിച്ച പുരി ഖുർദ കട്ടക് കേന്ദ്രപദ ജില്ലകളിൽ രക്ഷാപുനരധിവാസ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു

പൂർണ്ണമായും ഇവ അയൽ സംസ്ഥാനങ്ങളിൽ പുനസ്ഥാപിക്കാൻ നിന്നും അയ്യായിരത്തോളം വിദഗ്ധ തൊഴിലാളികളെ ലഭ്യമാക്കുമെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആദിത്യ പ്രസാദ് പാധി മാധ്യമങ്ങളെ അറിയിച്ചു ബാങ്കിംഗ് സേവനവും പുനരാരംഭിച്ചിട്ടുണ്ട് ദുരിതബാധിത പ്രദേശങ്ങളിലെല്ലാം എറ്റിഎം

ദേശീയ ദുരന്ത പ്രതികരണ സേന ഒഡീഷയിലെ ദുരന്ത ദ്രുതകർമ്മസേന ഫയർ ഫ്രിഗേഡ് സി ആർ

എഫ് ജവാന്മാർ എന്നിവരുടെ നേതൃത്വത്തിൽ റോഡുകൾ ശുചീകരണം നടന്നുവരികയാണ്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് പ്രചാര്യണ് വേളയിൽ കോൺഗ്രസ്സ് അധ്യക്ഷൻ പരാമർശം നടത്തിയ്ത്

ജെ

മീനാക്ഷി ലേഖിയാണ് ഇത് സംബൃസ്ടിച്ച് സുപ്രീംകോടതിയിൽ പരാതി നൽകിയത്

ജി പരീക്ഷയ്ക്കുള്ള ഈ അദ്ധ്യയന വർഷത്തെ കുറഞ്ഞ യോഗ്യത മാർക്ക് ആറ് ശതമാനം കുറയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയിലെ ഗവർണർമാരുടെ ബോർഡുമായി നടത്തിയ കൂടിയാലോചനയിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി

ജി

ടി

ജി ക്കു പ്രവേശനം നേടാനുള്ള കുറഞ്ഞ യോഗ്യത

കോഴിക്കോട് ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം

തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലനിൽക്കുന്നതിനാൽ വിദ്യഭ്യാസ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിച്ചത്

ഊർജ്ജ മന്ത്രാലയ സെക്രട്ടറി അനന്ദ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഊർജ്ജ പുനരുപയോഗ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ യോഗത്തിൽ സംബന്ധിച്ചു സൌരോജ്ജം കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ചെറുകിട ജലസേചന പദ്ധതികൾ മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങി വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു

ഈസ്റ്റർ ദിനത്തിൽ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷമാണ് ശ്രീലങ്കയില്ലേക്ക് യാത്രയ്ക്ക് വിലക്ക് പ്രഖ്യാപിച്ചത് കൂടുതൽ വിവരങ്ങളുമായി വിനോദ് കുമാർ വിനോദ സഞ്ചാരികൾ ശ്രീലങ്കയിലേക്ക് തിരിച്ചെത്തുന്നുണ്ടെന്ന് പ്രസിഡന്റ് മൈത്രിപാല സ്പിരിസ്ന ഇന്നലെ കൊളംബോയിൽ നടന്ന സമ്മേളനത്തിൽ പറഞ്ഞു സ്ഞ്ചാരികൾ എത്തുന്നതിനുള്ള തടസ്റ്റങ്ങൾ നീക്കണമെന്നും അദ്ദേഹം വിദേശ സംഘടനകളോട് ആവശ്യപ്പെട്ടു നിലവിലുള്ള നടപടികളിലൂടെയും വിദേശ സഹായത്താലും തീവ്രവാദ ഭീഷണിക്ക് ഉടൻ തന്നെ കടിഞ്ഞാണിടാൻ കഴിയുമെന്നും ശ്രീ

ഇന്ത്യ യു

ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രീലങ്കയിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ശ്രീലങ്ക സന്ദർശിക്കുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്

സമ്പദ്ഘടനയുടെ ശ്രീലങ്കൻ അഞ്ച് ശതമാനം വിനോദസഞ്ചാരമേഖലയിൽ നിന്നുമുള്ളതാണ്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ദന്തേവാദ്യ ജില്ലയിലെ അരൺപൂരിൽ മാവോയിസ്റ്റുകളുടെ സാന്നിദ്ധ്യം ഉണ്ട്ടെന്ന് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊലീസ് സംഘ് ് ന്ടത്തിയ തിരച്ചിലിനൊടുവിൽ നടന്ന വെടിവെയ്പിലാണ് ഇവർ കൊല്ലപ്പെട്ടത് ഇവരുടെ പക്കൽ നിന്ന് റൈഫിലുകളും മറ്റും കണ്ടെടുത്തു

എലൈറ്റ് സേനയിലെ അഞ്ച് ഉദ്യാഗസ്ഥർ കൊല്ലപ്പെട്ടതായി പഞ്ചാബിലെ ഇൻസ്പെക്ടർ ജനറൽ ആരിഫ് നവാസ് സ്ഥിരീകരിച്ചു പാക് പൌരൻമാരാണ് മരിച്ച മറ്റ് നാല് പേർ

സ്ഫോടനം നടന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ ആക്രമണത്തെ അപലപിച്ചു

ലോകമെമ്പാടും റെഡ് ക്രോസ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം എന്ന നിലയിലാണ് ഈ ദിവസം ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് ലോകജനതയ്ക്ക് വേണ്ടി റെഡ് ക്രോസിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന എല്ലാ വോളന്റിയർമാർക്കുമുള്ള നന്ദി സൂചകം കൂടിയാണ് ഈ ദിനം റെഡ് ക്രോസിന്റെ അന്താരാഷ്ട്ര കമ്മറ്റിയുടെ സ്ഥാപകനായ ഹെൻറി ഡ്യുനന്റിന്റെ ജന്മവാർഷികംകൂടിയാണ് ഇന്ന്

ആദ്യ യോഗ്യതാ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിംഗ്സിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഫൈനൽ പ്രവേശനം

കേരളത്തിലേക്ക് വ്യവസായ നിക്ഷേപം ആകർഷിക്കുന്നതിന് സ്വിസ് സ്ര്ര്യഭക്രുമായി അദ്ദേഹം ചർച്ച നടത്തും